പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കർണാടകയിലെത്തും കൃഷി സമ്മാൻ യോജനയിൻ കീഴിൽ എട്ട് കോടി കർഷകർക്ക് ധനസഹായം വിതരണം ചെയ്യും

ഉൾപ്പെടെയുള്ള ജയിൽ തട്വുകാരുടെ പട്ടിക കൈമാറി

റിസർവ് ബാങ്ക് പുതിയ മൊബൈൽ ആപ് പുറത്തിറക്കി

കർണാടകയിലെ തുംകുരു ജൂനിയർ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന കാർഷിക പുരസ്കാരദാന ചടങ്ങിൽ ശ്രീ

പ്രധാനമന്ത്രി കൃഷി സമ്മാൻ യോജനയുടെ ഭാഗമായി എട്ട് കോടി കർഷകർക്ക് ഡിസംബർ ഫെബ്രുവരി കാലയളവിലെ ധനസഹായത്തിന്റെ വിതരണവും ശ്രീ

ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ വിവിധ പുരസ്ക്കാരങ്ങളും അദ്ദേഹം സമ്മാനിക്കും

ഭൂട്ടാൻ രാജാവ് ഭൂട്ടാൻ പ്രധാന്ത്മുൻ്തി ശ്രീലങ്ക മാൽദീവ്സ് പ്രസിഡന്റുമാർ ശ്രീലങ്ക ബംഗ്ലാദേശ് നേപ്പൂജ് എന്നീ രാജ്യങ്ങളുടെ പ്രധാന മന്ത്രിമാർ എന്നിവരുമായാണ് ശ്രീ

അയൽപക്കത്തിന് മുൻഗണന എന്ന നയത്തോട് ഇന്ത്യയ്ക്കുള്ള പ്രതിബദ്ധതയും സൌഹൃദ രാജ്യങ്ങളുമായി സമാധാനം സുരക്ഷ അഭിവൃദ്ധി വികസനം എന്നീ ആശയങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നതിന്റെ കാഴ്ചപ്പാടും പ്രധാനമന്ത്രി വൃക്തമാക്കി ഈ വർഷം ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുമെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോതബായ രജപക്സെ പ്രധാനമന്ത്രിയുടെ ആശംസകളോട് പ്രതികരിച്ചു അടുത്ത മൂന്ന് വർഷത്തേക്ക് അവാമി ലീഗ് അദ്ധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ശ്രീ നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചു

എല്ലാ വർഷവും ജനുവരി ഒന്നിനും ജൂലൈ ഒന്നിനും ഇരുരാജൃങ്ങൾക്കുമിടെ ഇങ്ങനെയൊരു പട്ടിക കൈമാറ്റം ചെയ്യണമെന്നാണ് ഉടമ്പടി

സിമിക്ക് നൽകിയ പിന്തുണ ഉൾപ്പെടെ നിരവധി ആരോപണങ്ങളാണ് സംഘടനയ്ക്ക് എതിരെ ഉള്ളതെന്ന് ശ്രീ

തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര മന്ത്രാലയം തുടർനടപടികൾ സ്വീകരിക്കുമെന്ന് നിയമമന്ത്രി വ്യക്തമാക്കി

ഇതനുസരിച്ച് കുറഞ്ഞ വരിസംഖ്യയിൽ കൂടുതൽ ചാനലുകൾ കേബിൾ ടി വി ഉപയോക്താക്കൾക്ക് ലഭ്യമാകും

ഒന്നിലധികം ടിവി കണക്ഷൻ ഉപയോഗിക്കുന്നവരിൽ നിന്ന് നെറ്റ്വർക്ക് കപ്പാസിറ്റി ഫീസ് ഇനത്തിൽ ഓപ്പറേറ്റർമാർ ഭീമമായ തുക ഈടാക്കുന്നതായി ഉപഭോക്താക്കൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതായും ട്രായ് വ്യക്തമാക്കി

വരുമാനം ഒരു ലക്ഷം കോടി രൂപ കവിഞ്ഞതായി കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു

റിട്ടേണുകളും കഴിഞ്ഞ വർഷം ഫയൽ ചെയ്യുകയുണ്ടായി

ജമ്മു കാശ്മീർ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ശ്രമഫലമായാണ് സേനയുടെ പ്രവർത്തനത്തിന് പുതുജീവൻ നൽകിയത് ഗുജറാത്തിലെ കേവാഡിയയിൽ കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനങ്ങൾക്കായി സംഘടിപ്പിച്ച യോഗത്തിലാണ് ഇതിനുള്ള അംഗീകാരമായത്

രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷ്ടനായി പുതിയ നടപടി ക്രമങ്ങൾ കമ്മീഷൻ കഴിഞ്ഞ മാസം പുറപ്പെട്ടുവിച്ചിരുന്നു പുതിയ നടപടി ക്രമങ്ങൾ ഇന്നലെ പ്രാബല്യത്തിൽ വന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച നട്ടപ്പട്ടീക്ളുടെ പുരോഗതി എസ് എം എസ് വഴിയോ ഇ മെയിൽ വഴിയോർ ലഭ്യമാകും

കാഴ്ച പരിമിതിയുള്ളവർക്കായാണ് മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ മണി എന്ന ആപ്ലിക്കേഷന് ആർ ബി ഐ രൂപം നൽകിയത് ഇത് ആൻഡ്രോയിഡിലും ഐ

എസ് ഓപ്പറേറ്റിംഗ് സംവിധാനത്തിലും ലഭ്യമാകുമെന്ന് ആപ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്ത റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു ഓഫ്ലൈൻ ആയും പ്രവർത്തിക്കുന്ന ആപ്തിക്കേഷനിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും വിവരങ്ങൾ ശബ്ദരൂപേണ ലഭ്യമാകും

മത്സ്യ കൃഷിക്കെന്ന വ്യാജേനയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡുപയോഗിച്ച് വായ്പയെടുത്തത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അനുസരിച്ച് സി ബി ഐ യും വിശാഖപ്ട്ടണത്തെ ആന്റി കറപ്ഷൻ ബ്രാഞ്ചുമാണ് കേസെടുത്തത്

ജി പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി ഈ മാസം ആറ് വരെ നീട്ടി വെബ്സൈറ്റിലെ തിരക്ക് മൂലം ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്ത പരീക്ഷാർത്ഥികൾക്ക് ഇത് പ്രയോജനപ്പെടും

കില്ല്മീർ താഴ്വര ലേ കാർഗിൽ എന്നിവിടങ്ങളിലെ പരീക്ഷാർത്തികൾക്ക് ഈ മാസം ആറ് വരെ ഓഫ്ലൈനായും അപ്പേക്ഷ സമർപ്പിക്കാം

വൈ മുൻഗണന കാർഡുകൾക്ക് ഏത് സംസ്ഥാനത്തു നിന്നും റേഷൻ വാങ്ങാം ആധാർ അടിസ്ഥാനമാക്കിയുള്ള ബയോമെട്രിക് തിരിച്ചറിയൽ സംവിധാനം വഴിയാണ് ഉപഭോക്താക്കളെ കണ്ടെത്തുന്നത് ഇതിനാവശ്യമായ സാങ്കേതിക സംവിധാനം എല്ലാ സംസ്ഥാനങ്ങളിലേയും ഇ പോസ് മെഷീനുകളിൽ അപ്ഡേറ്റ് ചെയ്തു തുടങ്ങി ന്യൂസ് ഡെസ്ക് ആകാശവാണി

സമ്മേളനം നാളെ സമാപിക്കും

ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്രാൻ മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്യും